ളനം ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും

സേവനം ലഭ്യമാക്കാൻ പ്പൊലീസ് ശ്രമിക്കണമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സീംഗ്

യൂത്ത് ഒളിമ്പിക്സിൽ ഇന്തൃയ്ക്ക് രണ്ടാം സ്വർണം

വൈകിട്ട് നാല് മണി വരെയാണ് പോളിംഗ്

വോട്ടെടുപ്പിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

രാജ്യത്തെ എല്ലാ അക്കൌണ്ട്ന്റ്സ് ജനറൽമാരും രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും പൊതു ചെലവുകളിലെ കാര്യക്ഷമത ഓഡിറ്റിംഗിൽ ഉപയോഗിക്കേണ്ട നൂതന സങ്കേതങ്ങൾ തുടങ്ങിയവ സമ്മേളനം ചർച്ച ചെയ്യും ലോക്സഭാ സ്പീക്കർ സുമിത്രാ മഹാജൻ പി

സി ചെയർമാൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിക്കും

ന്യൂഡൽഹിയിൽ തന്നെ സന്ദർശിച്ച കാനഡ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ആൻഡ്രൂ ഷീറുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയും കാനഡയും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ട്

ഇന്ത്യ കാനഡാ സൌഹൃദം ഇനിയും വർധിക്കുമെന്ന് ആൻഡ്രൂ ഷീർ പറഞ്ഞു

എസ് ബാച്ചിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി പോലീസ് സേനയിൽ വൈദഗ്ധ്യവും കഴിവും ഉയർത്താൻ അതാത് പ്രൊഫഷണൽ പ്രദേശങ്ങളുടെ ആവശ്യാനുസരണം ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകാൻ നിയമപാലകർ മ്മുൻകൈയെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ആധുനിക സമൂഹത്തിൽ നിലനിൽക്കുന്ന് ഹൈടെക് കുറ്റകൃതൃങ്ങൾ ഭീകരവാദം ഇടതു തീവ്രവ്വാദം എന്നിവ തടയുന്നതിന് പ്രത്യേക വൈദഗ്ധൃം തന്നെ ആവശ്യമാണെന്ന് ശ്രീ

നിരന്തര സമ്പർക്കവും ഇടപെടലും ഒപ്പം മാനുഷിക സമീപനവുമാണ് പോലീസ് സേനയ്ക്ക് അനിവാരൃമായതെന്നും ശ്രീ രാജ്നാഥ് സിങ് പറഞ്ഞു

ഇവ കൈവശം വയ്ക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ ലൈസൻസിന്റെ ആവശ്യമില്ലെന്ന് ടെലികോം വകുപ്പ് വിഞ്ജാപനത്തിൽ വ്യക്തമാക്കി

ന്യൂഡൽഹിയിൽ കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച ശിൽപശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലാവസ്ഥാ വൃതിയാനം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് സുപ്രധാന പങ്കുവഹിക്കാൻ കഴിയും സാങ്കേതിക വിദ്യാ കൈമാറ്റവും സാമ്പത്തിക സ്ഥിതിയും വലിയ വെല്ലുവിളികളാണ് കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച കേന്ദ്ര സംസ്ഥാന കർമ്മ പദ്ധതികൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ഡോ ഹർഷവർധൻ പറഞ്ഞു

കമ്പനിയുടെ ഭാവി പദ്ധതി ഇരുവരും അവലോകനം ചെയ്തു എയർ ഇന്ത്യയെ പുനരുദ്ധരിക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതികൾ അവലോ കനം ചെയ്തതായി ശ്രീ

രണ്ടാഴ്ചയ്ക്കകം പുനരുദ്ധാരണ പാക്കേജിന് അന്തിമരൂപം നൽകുമെന്ന് വ്യോമയാന സെക്രട്ടറി ആർ

ചൌബേ കഴിഞ്ഞദിവസം അറിയിച്ചിരുന്നു

ഇന്ത്യ സന്ദർശിക്കുന്ന ബാങ്കിന്റെ എക്സിക്യുട്ടീവ് വൈസ് പ്രസിഡന്റ് ഡേവിഡ് ബൊഹീഗി യൻ അറിയിച്ചതാണ് ഇക്കാര്യം

ഐ

ബന്ധപ്പെട്ട കമ്പനികളാണ് ഇവ വിവിധ സംഘടനകൾക്ക് പണം നൽകിയതിൽ പങ്കുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണം നേരിടുകയാണ് ഈ കമ്പനികൾ

ബാങ്ക് അക്കൌണ്ടുകളുടെ രേഖകളും ഇവ യിൽ ഉൾപ്പെടും

വൽക്കരണ പരിപാടികൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി രാവിലെ ഉദ്ഘാടനം ചെയ്യും യുവജനങ്ങളും മാറുന്ന ലോകത്തിലെ മാനസികാരോഗൃവും എന്ന താണ് ഈ വർഷത്തെ പ്രമേയം

എസ് ആർ ഒ ചെയർമാൻ ഡോ

ശിവൻ സമ്മേ ളനം ഉദ്ഘാടനം ചെയ്യും

ജില്ലാ സഹകരണ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും ലയിച്ചാണ് കേരളാ ബാങ്ക് സ്ഥാപിക്കുന്നത് പഞ്ചാബിൽ കേരള മാതൃകയിൽ ടു ടയർ സംവിധാനം ഏർപ്പെടു ത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം

വോട്ടെടുപ്പിനുള്ള ക്രമീകര ണങ്ങൾ പൂർത്തിയായി വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ

എന്നിലെ അമേരിക്കൻ സ്ഥാനപതി നിക്കി ഹാലെ രാജിവച്ചു പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് നിക്കി ഹാലെയുടെ രാജി സ്വീകരിച്ചു വിശദാംശങ്ങളുമായി ഷീജ

കഴിഞ്ഞയാഴ്ച യു എസ് സന്ദർശിച്ച ഹാലെ സ്ഥാനം ഒഴിയുന്ന കാര്യം ട്രംപിനോട് ചർച്ച ചെയ്തിരുന്നു ഇക്കാര്യം ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സൌത്ത് കരോളിന മുൻ ഗവർണറായ ഹാലെ പ്രസിഡന്റ് ട്രംപിന്റെ വിമർശകയായിട്ടാണ് അറി

എന്നിലെ സ്ഥാനപതിയായി നിയമിക്കുകയായിരുന്നു സുപ്രധാന പ്രഖ്യാപനം ഓവൽ ഓഫീസിൽ നിന്നുണ്ടാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് ട്വീറ്റ് ചെയ്തതിന് പിന്നാലെയാണ് നിക്കി ഹാലെ യുടെ രാജിവിവരം പുറത്തുവന്നത്

എന്നിൽ അമേരിക്കയ്ക്കുവേണ്ടി നിർണായക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്

അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകില്ലെന്ന് ഹാലെ വൃക്തമാക്കിയിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സാഗര സുരനിമില എന്നീ കപ്പലുകളാണ് സന്ദർശനം നടത്തിയത് കപ്പലുകളുടെ കമാന്റിംഗ് ഓഫീസർമാർ കൊച്ചി നാവിക കേന്ദ്രത്തിലെ റിയർ അഡ്മിറൽ ആർ

നദ്കർണിയെ സന്ദർശിച്ച് വിവിധ മേഖലകളിലെ ഇരുരാജൃങ്ങളും തമ്മിലുള്ള സഹകരണം സംബന്ധിച്ച് ചർച്ചകൾ നട ത്തി

നാളെ സംഘം തിരിച്ചുപോകും